ശുചിത്വം തന്നെ ്രസേവനം ബഹുജനപ്രസ്ഥാനത്തിന്റെ ഭാഗ മാകാൻ ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു

സാഫ് കപ്പ് ഫുട്ബോൾ സെമിയിൽ ഇന്ത്യ ഇന്ന് പാക്കിസ്ഥാനെ നേരിടും

കോടതികളുടെ അധികാരത്തിൽ ഇടപെടാനാണ് ഓർഡിനൻസിലൂടെ ഗവൺമെന്റ് ശ്രമിച്ചതെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യക്ത മാക്കിയാണ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ സുപ്രിം കോടതി ബെഞ്ച് ഓർഡിനൻസ് റദ്ദാക്കിയത്

ബി ബി

ഇത് വഴി ക്രമവിരുദ്ധമായ പ്രവേശനം ക്രമവത്ക്കരി ച്ചു പിന്നീട് നിയമസഭ നിയമവും പാസാക്കി എന്നാൽ ഗവർണർ ബില്ലിന് അംഗീകാരം നൽകിയിരുന്നില്ല ഓർഡിനൻസിനെതിരെ ഇന്ത്യൻ മെഡി ക്കൽ കൌൺസിൽ സുപ്രീംകോടതിയെ സമീപ്പിക്കുകയായിരുന്നു ൾ ൽ ൾ വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് മെഡിക്കൽ ഓർഡി നൻസ് കൊണ്ടുവന്നതെന്ന് മന്ത്രി കെ

കണ്ണൂർ കരുണ കോളജുകളുടെ മാനേജ്മെന്റുകളുടെ ഭാഗത്ത് നിന്നും വലിയ കെടുകാര്യസ്ഥതയാണ് ഉണ്ടായതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഇവരുടെ റാങ്ക് പട്ടിക തെറ്റാണെന്ന് നേരത്തെ തന്നെ ഗവൺമെന്റ് വ്യക്ത മാക്കിയതാണ് അലോട്ട് മെന്റ് കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥികൾ സങ്കട ഹർജിയുമായി വന്നപ്പോഴാണ് ഓർഡിനൻസ് ഇറക്കിയതെന്ന് മന്ത്രി പറ ഞ്ഞു സുപ്രിംകോടതി ഉത്തരവ് അനുസരിച്ച് മാത്രമേ അലോട്ട്മെന്റ് നട ത്താനാവൂ എന്ന് ശൈലജ അറിയിച്ചു ങ്ങ ൽ ശനിയാഴ്ച ആരംഭിക്കുന്ന ശുചിത്വം തന്നെ സേവനമെന്ന ബഹുജ നപ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹാനം ചെയ്തു ശുചിത്വഭാരതം സൃഷ്ടിക്കാൻ നടത്തുന്ന യത്നത്തിന് ശക്തി പകരണമെന്ന് ഒട്ടേറെ ട്വീറ്റുകളിലും വീഡിയോ മെസേജുകളിലു മായി പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു രാഷ്ട്രപിതാവ് മഹാത്മാഗന്ധിയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമിതാണെന്ന് അദ്ദേഹം പറഞ്ഞു

ശുചിത്വ ഇന്ത്യയെന്ന ഗാന്ധിജി യുടെ സ്പ്നം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ശുചിത്വഭാരതം എന്ന ബഹുജന പ്രസ്ഥാനം ഇതോടെ നാല് വർഷം പൂർത്തിയാകുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ശുചിത്വഭാരതത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ വരെയും അദ്ദേഹം അഭിവാദ്യം ചെയ്തു

പദ്ധതിയുടെ ഉദ്ഘാടനം ഝാർഖ ണ്ഡിലായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ അറിയി ച്ചു

ഹരിയാന കർണാലിലെ നവ ജാത ശിശു കരിഷ്മയാണ് പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താവ് ൾ ൽ ൾ പ്രളയക്കെടുതി വിലയിരുത്താൻ സംസ്ഥാനത്തെത്തിയ ലോകബാങ്കി ന്റെയും ഏഷ്യൻ വികസനബാങ്കിന്റെയും പ്രത്യേകസംഘം കോഴിക്കോ ട് ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ സന്ദർശനം തുടരുകയാണ് കോഴിക്കോട് കലക്ടറും ജില്ലയിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചക്ക് ശേഷമാണ് സംഘം സന്ദർശനം ആരംഭിച്ചത് ജില്ലയിലെ മാളിക്കടവ് മുക്കം തിരുവ മ്പാടി കൂടരഞ്ഞി മേഖലകളിലാണ് സംഘം സന്ദർശനം നടത്തിയത് ഉരുൾപൊട്ടൽ ഉണ്ടായ കരിഞ്ചോലമലയിലും കണ്ണപ്പൻ കുണ്ടിലും വയ നാട് ചുരത്തിലെ മണ്ണിടിഞ്ഞ പ്രദേശങ്ങളിലും സംഘം സന്ദർശനം നട ത്തും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ഉണ്ടായ നാശനഷ്ടങ്ങളും കൃഷി നാശവും വിദഗ്ദർ പരിശോധിക്കും ആലപ്പുഴയിൽ കൃഷി ടൂറിസം മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ നേരിട്ട പ്രതിസന്ധി ഉദ്യോഗ സ്ഥർ പരിഗണിക്കും ഇടുക്കി ജില്ലയിൽ രാവിലെ നേരിയമംഗലത്ത് സംഘം സന്ദർശനം നടത്തി അടിമാലി ടൌൺ കൂമ്പൻപാറ ഇരുട്ടുഗാനം രണ്ടാം മൈൽ തുടങ്ങിയ പ്രദേശങ്ങളും ഇന്ന് സന്ദർശിക്കും നാളെയും സംഘം ജില്ലയിൽ സന്ദർശനം നടത്തും

സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ധനമന്ത്രിയുമായും ഉന്നതഉദ്യോഗസ്ഥരുമായും സംഘം ചർച്ച നടത്തും ൾ ൽ ൾ സംസ്ഥാനത്തെ പ്രളയക്കെടുതി നേരിടാൻ നെതർലൻസിന്റെ സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കേരളം കത്തയച്ചു പ്രളയത്തിന്ശേഷം നട ത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സഹായം ലഭ്യമാക്കാൻ അനുമതി ആവശ്യപ്പെട്ടാണ് ആഭ്യന്തര വിദേശ മന്ത്രാലയങ്ങൾക്ക് കത്തയച്ചത് ൾ ൽ ൾ കേരളത്തിലെ പ്രളയദുരന്തവുമായി ബന്ധപ്പെട്ട രണ്ട് ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പ്രളയം മനുഷ്യനിർമ്മിതമെന്ന് കാണിച്ച് നൽകിയ കത്തിൽ സ്വമേധയാ എടുത്ത കേസും ദുരന്തത്തിന് ഇടയാക്കിയത് ഗവൺമെന്റ് സംവിധാനങ്ങളുടെ വീഴ്ചയാണെന്ന ടി ജി മോഹൻദാസിന്റെ ഹർജിയുമാണ് പരിഗണിക്കുന്നത് ഹർജികളിൽ ഗവൺമെന്റ് ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയേക്കും

ൾ ൽ ൾ പ്രളയാനന്തര സാഹചരൃത്തിൽ ചെലവു ചുരുക്കലിന്റെ ഭാഗമായി ഉപജില്ലാ സ്കൂൾ കലോത്സവങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന കാര്യം പരിഗ ണിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ

അധ്യാപക സംഘടനകളുമായി ഈ കാര്യം ചർച്ച് ചെയ്ത് തീരു മാനമെടുക്കുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

കലോത്സവത്തിന് സ്ഥിരം വേദി എന്ന നിർദ്ദേശവും പരിഗണിക്കുമെന്ന് മോഹൻകുമാർ അറിയിച്ചു ൾ ൽ ൾ കൊച്ചിയിൽ ജലന്ധർ ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകളുടെ പ്രത്യക്ഷസമരം അഞ്ചാം ദിവസത്തേക്ക് കുടന്നു സിനിമാ മേഖലയിലെ വനിതാ സംഘടനകളും വിവിധ പുരോഗമന് ക്രൈസ്തവ സംഘടനകളും കന്യാസ്ത്രീകൾക്കനുകൂലമായി രംഗത്ത് വന്നു തിരുവനന്തപുരത്ത് സമ രത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി

സുധീരൻ പങ്കെടുത്തു പദവി കൾ ഒഴിഞ്ഞ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നിയമത്തിന് കീഴടങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ക്രൈസ്തവ സഭയ്ക്കെതിരായ സമരമല്ല ഇതെന്നും നിയമവും നിയമവിരുദ്ധതയും തമ്മിലാണ് പോരാടുന്നതെന്ന് സുധീരൻ അഭിപ്രായപ്പെട്ടു ൾ ൽ ൾ ബിഷപ്പിനെതിരായ കന്യാസ്ത്രീയുടെ പരാതിയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് നോട്ടീസ് അയക്കാൻ പൊലീസ് തീരുമാനിച്ചു അന്വേഷണം സംഘത്തിലെ വൈക്കം ഡി വൈ എസ് പി കെ സുഭാഷാണ് ഇക്കാര്യം അറിയിച്ചത് ൾ ൽ ൾ ബിഷപ്പിനെതിരായ കന്യാസ്ത്രീയുടെ ആരോപണത്തിൽ വസ്തുതാ പരമായി അന്വേഷണം പൂർത്തിയാക്കാനാണ് ഗവൺമെന്റിന്റെ ശ്രമമെന്ന് സി പി ഐ എം പോളിറ്റ്ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള പറഞ്ഞു അതിനിടയിൽ ആരോപണം ഉന്നയിക്കുന്നത് ഗവൺമെന്റിന്റെ നീക്കത്തെ ദുർബലപ്പെടുത്തുമെന്ന് രാമചന്ദ്രൻപിള്ള ഡൽഹിയിൽ അഭിപ്രായപ്പെട്ടു

കന്യാസ്ത്രീയുടെ മൊഴികളിൽ വൈരുധ്യമുണ്ടെന്നും ആരോപണം തെളിയുന്നത് വരെ മാധ്യമങ്ങൾ മിതത്വം പാലിക്കണമെന്നും അവർ വാർത്താകുറിപ്പിൽ അഭ്യർത്ഥിച്ചു

ഇന്ത്യൻസമയം രാത്രി ഏഴിന് ധാക്കയിലാണ് പോരാട്ടം വർഷ ങ്ങൾക്കുശേഷമാണ് ഫുട്ബോളിൽ ഇന്ത്യയും പാകിസ്താനും ഏറ്റുമുട്ടു ന്നത്

ൾ ൽ ൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയ തീർത്ഥാടകർ ഇന്ന് മുതൽ തിരിച്ചെത്തും

രണ്ടാമത്തെ വിമാനം വൈകീട്ട് ആറ് മണിക്ക് എത്തിച്ചേരും മന്ത്രി കെ ടി ജലീൽ സംസ്ഥാന ഹജ്ജ് കമ്മറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഹാജിമാരെ സ്വീകരിക്കും

ൾ ൽ ൾ പത്തനംതിട്ട് ജില്ലയിലും രാജ്യത്തിന്റെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങ ളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു

അസമിലെ കൊക്രജാർ മേഖല യിലും പശ്ചിമബംഗാളിലെയും ബീഹാറിലെയും പലസ്ഥലങ്ങളിലും ഭൂചലനം ഉണ്ടായി

ൾ ൽ ൾ മലമ്പുഴ ഉദ്യാനത്തിൽ വിനോദസഞ്ചാരികൾക്കായി സൈക്കിൾ സവാരി പദ്ധതിക്ക്

ഉദ്യാനത്തിലെ മംഗോ ഗാർഡൻ വ്യൂപോയിന്റ് എന്നിവിടങ്ങളിലാണ് സവാരിക്ക് സൌകര്യം ഒരുക്കി യിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ മലമ്പുഴ റിങ് റോഡിൽ സൌകര്യം ഒരുക്കും

ശശി എം

എ ക്കെതിരായ പീഡനാ രോപണ വിഷയത്തിൽ സത്യപ്രതിജ്ഞാലംഘനം നടത്തിയ മന്ത്രി എ

ബാലനെ ട മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ

പാലക്കാട് ജില്ലാ കമ്മറ്റി ഗവർണ്ണർക്ക് പരാതി നൽകി

എൽ എ ക്കെതിരെ പോലീസ് അനേഷണം ആവശ്യപ്പെട്ട് ഇന്ന് ഉച്ചക്ക് ചെർപ്പുളശ്ശേരിയിൽ ബി

പി പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും

ൾ ൽ ൾ ൾ ൾ ൾ ൾ ൾ ൾ ൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ പാലയാട് ക്യാമ്പസിൽ യൂണി യൻ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ വൈസ് ചാൻസിലർ ശ്രമിച്ചുവെ ന്നാരോപിച്ച് എ ഐ എസ് എഫ് പ്രവർത്തകർ വൈസ് ചാൻസിലറെ ഘെരാവോ ചെയ്തു

ഇതേ തുടർന്ന് പൊലീസ് എ ഐ എസ് എഫ് പ്രവർത്തകരായ ഒ പേരെ കസ്റ്റഡിയിലെടുത്തു ൾ ൽ ൾ തമിഴ്നാട്ടിൽ ഈറോഡ് ജില്ലയിൽ ശാസ്ത്രി നഗറിൽ പടക്കത്തിന് തീ പിടിച്ച് പൊട്ടിത്തെറിച്ച് മൂന്ന് പേർ മരിച്ചു അഞ്ച് പേർക്ക് പൊള്ളലേ റ്റു രണ്ട് വീടുകൾ സ്ഫോടനത്തിൽ തകർന്നു ദീപാവലിക്ക് വിൽക്കുന്ന തിനായി കൊണ്ടുവന്ന പടക്കങ്ങൾ വാഹനത്തിൽ നിന്ന് താഴെ ഇറക്കു മ്പോഴായിരുന്നു തീപിടിച്ച് സ്ഫോടനമുണ്ടായതെന്ന് പൊലീസ് പറഞ്ഞു വാഹനവും പൂർണ്ണമായി കത്തിനശിച്ചു